വി മുരളീധരൻ കേരളത്തിന്റെ പ്രാതിനിധ്യം

ഡി എ മന്ത്രിസഭ

ജെ പി അധ്യക്ഷൻ അമിത്ഷാ കാബിനറ്റ് പദവിയോടെ മന്ത്രി സ്ഥാനത്തെത്തി കേരളത്തിൽ നിന്ന് വി മുരളീധരൻ സഹമന്ത്രിയായി സത്യ പ്രതിജ്ഞ ചെയ്തു മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് തീരുമാനിച്ചേക്കും മുൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ കാബിനറ്റ് പദവിയോടെ കേന്ദ്രമ ന്ത്രിയായി മുൻ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന അരുൺ ജെയ്റ്റ്ലി സുഷമ സ്വരാജ് മേനകഗാന്ധി സുരേഷ് പ്രഭു രാജ്യവർധൻ സിംഗ് റാത്തോ ഡ് ജെ പി നദ്ദ ഉമാഭാരതി അൽഫോൻസ് കണ്ണന്താനം തുടങ്ങിയവരൊന്നും പുതിയ മന്ത്രിസഭയിൽ അംഗങ്ങളല്ല എന്നാൽ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമല സീതാരാമൻ സദാനന്ദ ഗൌഡ രാംവിലാസ് പസ്വാൻ രവി ശങ്കർ പ്രസാദ് നരേന്ദ്രസിംഗ് തോമർ താവർചന്ദ് ഗഹ്ലോട്ട് സ്മൃതി ഇറാ നി പിയൂഷ് ഗോയൽ പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവരെല്ലാം മന്ത്രിസ്ഥാനം നിലനിർത്തി നിർമല സീതാരാമൻ സ്മൃതി ഇറാനി ഹർസിമ്രത് കൌർ ബാദൽ എന്നിവരടക്കം ആറുപേരാണ് പുതിയ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാർ

ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന രമേഷ് പൊക്രിയാലും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാ യിരുന്ന അർജുൻ മുണ്ടെയും ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടു തൽ മന്ത്രിമാർ പ്രധാനമന്ത്രിയടക്കം പത്തുപേർ മന്ത്രിസഭയിൽ ഒരു കാബി നറ്റ് മന്ത്രിയെ മാത്രം നൽകിയതിൽ ജനതാദൾ യുണൈറ്റഡ് പ്രതിഷേധിച്ചു രണ്ട് മന്ത്രിസ്ഥാനമാണ് അവർ ആവശ്യപ്പെട്ടത് പ്രതീകാത്മക പങ്കാളിത്ത ത്തിൽ താല്പരൃമില്ലെന്നും എന്നാൽ സഖ്യത്തിൽ തുടരുമെന്നും പാർട്ടി അധ്യ ക്ഷനും ബിഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ്കുമാർ അറിയിച്ചു സത്യപ്ര തിജ്ഞാ ചടങ്ങിൽ ബിംസ്റ്റെക്ക് രാജ്യ നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെ ടുത്തു

എ അധ്യക്ഷ സോണിയഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയവരടക്കം നിര വധി നേതാക്കൾ പങ്കെടുത്തു ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തില്ല

പാർട്ടി യുടെ ഭാഗമെന്ന നിലയിലാണ് മന്ത്രിസഭയിലെത്തിയതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്ന പരിഹാരത്തിനാണ് ബി

പി ശ്രമിക്കുന്ന തെന്നും വി മുരളീധരൻ വ്യക്തമാക്കി ദർവ്വട്ടെഴ ചെറുപ്പത്തിന്റെ കരുത്തും മുതിർന്നവരുടെ അനുഭവ സമ്പത്തും ഉൾക്കൊ ണ്ടവരാണ് പുതിയ കേന്ദ്രമന്ത്രിസഭാംഗങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും മികവ് തെളിയിച്ച അവരുടെ സാന്നിധൃം ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെ ട്ടായി പ്രവർത്തിക്കാൻ മന്ത്രിസഭയെ പ്രാപ്തമാക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്റ റിൽ കുറിച്ചു

പ്രത്യേക കാരൃപരിപാടികൾ നിശ്ചയിച്ചിട്ടില്ലാത്ത യോഗം പാർലമെന്റ് സമ്മേളനത്തിന്റെ തിയ്യതി സംബന്ധിച്ച തീരുമാനമെടുത്തേക്കുമെന്ന് ഔദ്യോ ഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു

വിവിധ കാബിനറ്റ് കമ്മിറ്റികളുടെ രൂപീക രണം വരുംദിവസങ്ങളിൽ പ്രധാനമന്ത്രി പൂർത്തിയാക്കും രദ്ദേഷ്ടങ പതിനേഴാം ലോക്സഭയുടെ പ്രോടെം സ്പീക്കറായി മനേക ഗാന്ധിയെ നിയോഗിച്ചേക്കുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു മുൻ കേന്ദ്രമന്ത്രിയും എട്ടുതവണ എം പിയുമായ മനേക ഗാന്ധി ബി ജെ പി യുടെ മുതിർന്ന നേതാവാണ് രദ്ദേഷ്ടങ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരാനിരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം റദ്ദാക്കി കോൺഗ്രസാണ് തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ പരാജയ കാരണം വിലയിരുത്താനായി യോഗം വിളിച്ചിരുന്നത് പാർലമെന്റ് സമ്മേള നത്തിൽ സ്വീകരിക്കേണ്ട പ്രതിപക്ഷ നിലപാടും യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ചില നേതാക്കളുടെ അസ്ൌകര്യം മൂലമാണ് യോഗം മാറ്റി യതെന്നാണ് റിപ്പോർട്ട് രദേഷ്ടങ വെള്ളത്തിന്റെ വില തിരിച്ചറിയാനും സംരക്ഷിക്കാനും സമൂഹത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ജലസംരക്ഷണം സാധ്യമായാൽ കൃഷി യിലും മറ്റ് മേഖലകളിലും അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയു മെന്ന് അദ്ദേഹം പറഞ്ഞു പരിസരമലിനീകരണമോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കേരളത്തിൽ സ്ഥാപിക്കാനാ വുമെന്ന് യൂറോപ്യൻ സന്ദർശന വേളയിൽ ബോധ്യപ്പെട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു

ഏറെക്കാലം അനൌൺസറായിരുന്ന സുഷമ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് വാർത്താ അവതാരകയായത് മലയാള വാർത്താ പ്രക്ഷേപണത്തിന് പുതിയൊരു കാഴ്ച പ്പാടും ശൈലിയും നൽകിയാണ് അവർ പടിയിറങ്ങുന്നത്

പി രാജീ വനും ഇന്ന് വിരമിക്കുകയാണ്

അറി യപ്പെടുന്ന കവിയും സ്പോർട്സ് ലേഖകനും കമന്റേറ്ററും കൂടിയാണ് രാജീ വൻ

കാർഷിക മാധ്യമ പ്രക്ഷേപണ രംഗത്ത് കാൽ നൂറ്റാണ്ടി ലേറെ നിറഞ്ഞുനിന്ന വ്യക്തിത്വമാണ് മുരളീധരൻ തഴക്കരയുടേത് ആകാശ വാണിയുടെ പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗീസ് പത്തുവർഷത്തെ സേവ നത്തിന് ശേഷം വിരമിക്കുകയാണ്

ചവറയിലെ അടിസ്ഥാന മേഖലാ നിർമ്മാണ പഠന കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയായവർക്ക് ബിരുദവും നിയമന കത്തുകളും വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ടി ഐകളിൽ കൂടുതൽ കോഴ്സുകൾ തുടങ്ങുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറ ഞ്ഞു കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി

രദേഷ്ടെടു കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ പ്രവാസി നിക്ഷേപകർക്ക് നിക്ഷേപ സാധ്യതയൊരുക്കാൻ നോർക്ക റൂട്ട്സുമായി കരാർ ധാരണയായി

സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേർത്തല പട്ടണക്കാട്ടെ വീട്ടുവള പ്പിൽ നടക്കും

റൂർക്കി ഐ ഐ ടിയുടെ സഹാ യത്തോടെയാണ് നടപടികൾ ആരംഭിച്ചത്

ഇതിന്റെ ഭാഗമായി ഓണത്തിന് ഒരുമുറം പച്ചക്കറി പ്രചാരണത്തിന് വിദ്യാർത്ഥികൾക്ക് മൂന്നരലക്ഷം പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ വിതരണം ചെയ്യും കൃഷിഭവനു കൾ വഴി കർഷകർക്ക് ഒരുലക്ഷം വിത്ത് പാക്കറ്റുകളും പത്ത് ലക്ഷം തൈകളും നൽകും

റിസർവോയറിന്റെ കുളമാവ് വെള്ളാപ്പാറ അഞ്ചുരുളി പ്രദേശങ്ങളിൽ സോളാർ പാനൽ സ്ഥാ പിക്കുന്നതിനാണ് പഠനം നടത്തിയത്

ആലപ്പുഴ സ്വദേശികളായ നാലുപേരെ അർത്തുങ്കൽ പൊലീസ് അറസ്റ്റ് ചെയ്തു

മഞ്ഞുമൂടിയ മലനിരകളും തണുത്ത കാലാവസ്ഥയും ആസ്വദിക്കാനാണ് സഞ്ചാരികൾ കുടുംബസമേതം എത്തു ന്നത് പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും വാഗമണ്ണിലും എത്തിയത് ആ യിരക്കണക്കിനു സഞ്ചാരികളാണ് രദ്ദേഷ്ടങ ദേവികുളം ആകാശവാണി പഞ്ചായത്ത് പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്നിവ സംയുക്തമായി ഒരുക്കുന്ന ജനസമക്ഷം ഇടുക്കി ജില്ലയിലെ പഞ്ചാ യത്തുകളിലൂടെ ഒരു പര്യടനം പ്രക്ഷേപണ പരിപാട്ടി അടുത്ത തിങ്കളാഴ്ച മന്ത്രി എം

മുരിക്കാശേരി കമ്മ്യൂണിറ്റി ഹാളി ലാണ് ഉദ്ഘാടന ചടങ്ങ്

എം നിലയത്തിന്റെ പ്രക്ഷേപണ സമയം മറ്റന്നാൾ മുതൽ വർദ്ധിപ്പിക്കാനെടുത്ത തീരുമാനത്തെ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വാഗതം ചെയ്തു